പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉത്തർപ്രദേശ് ഛത്തീസ്ഗഡ് രാജസ്ഥാൻ പുതുച്ചേരി എന്നിവിടങ്ങളിലെ മുഖ്യമന്ത്രിമാരുമായി ചർച്ച നടത്തി

സ്ഥിരീകരിച്ചു

തിരുവനന്തപുരം എറണാകുള്ളൂ തൃശൂർ

നാളെ വരെ ശക്തമായ മഴയ്ക്കും കാറ്റിനും സാധ്യത

ഫൈനലിൽ നൊവാക് ജോകോവിച്ച് റഫേൽ നദാൽ പോരാട്ടം അല്പ സമയത്തിനകം

ഉത്തർപ്രദേശ് ഛത്തീസ്ഗഡ് രാജസ്ഥാൻ പുതുച്ചേരി എന്നിവിടങ്ങളിലെ മുഖ്യമന്ത്രിമാരുമായി അദ്ദേഹം നിലവിലെ സ്ഥിതിഗതികൾ അവലോകനും ചെയ്തു മഹാമാരിയെ നേരിടാൻ സംസ്ഥാന സർക്കാരുകൾ സ്പ്രീകരിച്ച നടപടികളും ശ്രീ മോദി വിലയിരുത്തി

കൂടുതൽ വിവരങ്ങളുമായി ലക്ഷ്മി ശ്രീ വിജയ

ഒരു പ്രദേശത്തേയും ഹോട്ട് സ്പോട്ടിൽ നിന്നും ഒഴിവാക്കിയിട്ടില്ല

ന്യൂസ് ഡെസ്ക് ആകാശവാണി

സോണുകളായി തിരിച്ച് ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിലാണ് നിയന്ത്രണം ആൾക്കൂട്ടം കണ്ടെത്താൻ ഡ്രോൺ പരിശോധനയും കാറന്റൈൻ ലംഘിക്കുന്നത് കണ്ടെത്താൻ ജിയോ ഫെൻസിങ് സാങ്കേതികവിദ്യയും ഉപയോഗിക്കും നിയന്ത്രണങ്ങൾ ലംഘിക്കുന്നവർക്കെതിരെ കർശനമായ നടപടിയെടുക്കുമെന്ന് മുഖ്യമന്ത്രി അറിയിച്ചു

ഈ പ്രായത്തിലുള്ള അനുബന്ധരോഗമുള്ളവരെയാണ് ആദ്യ മുൻഗണനാ പട്ടികയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്

കുട്ടികളുടെ ചിത്രങ്ങളും ബന്ധപ്പെടാനുള്ള വിവരങ്ങളും സാമൂഹ്യ മാധ്യമങ്ങളിൽ പങ്കിടരുത് കുട്ടികളെ ദത്തെടുക്കുന്നതിന്റെ പേരിൽ കടത്താനുള്ള സാധ്യതയുള്ളതിനാൽ ജാഗ്രത പാലിക്കണമെന്നും മന്ത്രി നിർദ്ദേശിച്ചു

ഗുജറാത്ത് മഹാരാഷ്ട്ര ദാമൻ ദിയു ദാദ്ര നാഗർ ഹവേലി എന്നിവിടങ്ങളിലെ മുഖ്യമന്ത്രിമാർ യോഗത്തിൽ പങ്കെടുത്തു കോവിഡ് ആശുപത്രികൾ ലാബുകൾ വാക്സിൻ ശീതികരണ ശൃംഖല മറ്റ് ആരോഗൃ സംവിധാനങ്ങൾ എന്നിവിടങ്ങളിൽ വൈദ്യുതിവിതരണം തടസ്സപ്പെടുന്നത് ഒഴിവാക്കാൻ സ്വീകരിച്ച നടപടികൾ സംബന്ധിച്ചും യോഗം ചർച്ച ചെയ്തു

സംസ്ഥാനത്ത് നാളെ വരെ ശക്തമായ മഴയ്ക്കും കാറ്റീന്റും സാധൃതയുണ്ട് രണ്ട് ദിവസമായി തുടരുന്ന അതിതീവ്രമഴയൂഠിശ്ക്തമായ കാറ്റും കാരണം കേരളത്തിൽ കനത്ത നാശ നഷ്ടങ്ങളുണ്ട്ടായി

കണ്ണൂർ കാസർകോട് വയനാട് മലപ്പുറം ജില്ലകളിൽ ശക്തമായ കാറ്റും മഴയും ഉണ്ടായി തെക്കൻ കേരളത്തിലും മഴ തുടർന്നു

തിരുവനന്തപുരത്ത് ശംഖുമുഖം എയർപോർട്ട് റോഡ് കടലെടുത്തു തീരമേഖലയിൽ കടലാക്രമണം തുടരുകയാണ്

കടലിൽ പോകുന്നതിന് നിരോധനം ഏർപ്പെടുത്തിയിട്ടുണ്ട്

കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ലക്ഷദ്വീപ് പ്രതിനിധി അബ്ദുൾ സലാം

നാളെ എൽഡിഎഫ് നേതൃയോഗം ചേർന്ന് ഔപചാരിക തീരുമാനം കൈക്കൊള്ളും സിപിഎം സിപിഐ ജനതാദൾ എസ് എൻസിപി മന്ത്രിമാരുഭ്ടു കാര്യത്തിൽ ഏകദേശ ധാരണയായാതായി സൂചനയുണ്ട്

അമേരിക്കയുടെ റെയ്ലി ഒപൽകയെ തോൽപ്പിച്ചാണ് സ്പെയിനിന്റെ നദാൽ ഫൈനലിൽ പ്രവേശിച്ചത്